മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് സ്നേഹോഷ്മള വരവേൽപ്പ്

സമാപനത്തോടനുബന്ധിച്ചുള്ള ഫെസ്റ്റിവൽ ഓൺ ഡമോക്രസി ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും

ഇന്നലെ രാജ്ഭവനിൽ തങ്ങിയ അദ്ദേഹം ഇന്ന് നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും

ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പീണറ്ായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി എ

ബാലൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡെപ്യൂട്ടി സ്പീക്കർ വി

ഉദ്ഘാടന ചടങ്ങിനു മുൻപ് രാഷ്ട്രപതി നിയമസഭാ വളപ്പിൽ വൃക്ഷത്തെ നടും സ്വതന്ത്ര ഇന്തൃയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ശാക്തീകരണം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച സാമാജികരുടെ ദേശീയ കോൺഫറൻസാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയിൽ ആദ്യം നടക്കുന്നത്

എൽ എമാർ ചടങ്ങിനെത്തുന്നുണ്ട്

ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുത്തൻവെല്ലുവിളികളെ അതിജീവിക്കാനായി ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇംപ്രിന്റ് രണ്ട് പദ്ധതിപ്രകാരമാണിത്

സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ ഹർജി മാറ്റി വെക്കണമെന്ന് സംസ്ഥാന ഭരണകൂടം സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്

ആധാർ വിവരങ്ങൾ ചോരുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും അവ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും യു

മൊബൈൽ ഫോണുകളിൽ പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നമ്പരുകൾക്കൊപ്പം അതോറിറ്റിയുടെ പഴയ ഹെൽപ്പ്ലൈൻ നമ്പറുകൾ കൂടി ചേർത്ത് നൽകിയതിൽ ഗൂഗിൾ അധികൃതർ വിശദീകരണം നൽകിയതായി അധികൃതർ ചൂണ്ടിക്കാട്ടി മൊബൈൽ ഫോണിലെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള നമ്പറുകൾ ഡാറ്റയിൽ നിന്ന് ചോർത്താൻ കഴിയില്ല എന്ന് ആധാർ അധികൃതർ അറിയിച്ചു മൊബൈൽ ഫോണുകളിൽ ആധാർ ഹെൽപ്പ് ലൈൻ നമ്പരുകൾ ഉൾപ്പെടുത്താൻ ഒരു ഏജൻസിയോടും ആവശ്യപ്പെട്ടിട്ടിരുന്നില്ല എന്നും അതോറിറ്റി അറിയിച്ചു

ആയിരക്കണക്കിന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ദേശീയ ദുരന്തനിവാരണ ഏജൻസി റിപ്പോർട്ട് ചെയ്തു

ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചുവെങ്കിലും പിന്നീട് പിൻവലിച്ചു

കൂരാക്കസിലെ വിവിധ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തുകയും നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു

പ്രസിഡന്റിന്റെ പ്രസംഗ പീഠത്തിനരികെ ഡ്രോൺ പറന്ന് അടുക്കുകയായിരുന്നു

പ്രാദേശിക സംഘടനയായ സോൾഡേഴ്സ് ഇൻ ടീഷർട്ട്സ് സമൂഹമാധ്യമത്തിലൂടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാൽ ഇതിന് സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല

കുട്ടനാട് ദുരിതാശ്വാസ നടപടികൾ അവലോകനം ചെയ്യാൻ ഇന്നലെ ആലപ്പുഴയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്ക്ടാര്യം തീരുമാനിച്ചത്

പാർപ്പിട നഗര വികസന മന്ത്രി ഹർദീപ് സിംഗ് പുരി ഫ്ളാഗ് ഓഫ് നിർവ്വഹിക്കും ലജ്പത്നഗർ മുതൽ ദുർഗാബായി ദേശ്മുഖ് സൌത്ത് ക്യാമ്പസ് വരെ നീളുന്നതാണ് പുതിയ പാത

കാണാതായ രണ്ട് പേർക്കായി തിരച്ചിൽ തുടരുന്നു

ഇതിനിടെ ഒപ്പമുണ്ടായിരുന്ന നാലുപേർ മുങ്ങിത്താഴുന്നത് കണ്ട് കുട്ടികൾ ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് രക്ഷാസംഘം പരിശോധന നടത്തുകയായിരുന്നു ഹരിയാനയിലെ പലു ഗ്രാമത്തിലെ കുട്ടികളാണ് അപകടത്തിൽപെട്ടത്

രാജ്യസഭാ സെക്രട്ടേറിയറ്റിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലാണ് പരിശീലന പരിപാടി നടന്നത്

സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള പോളിടെക്നിക്കുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അവസാനത്തെ സ്പോട്ട് അഡ്മിഷൻ ആഗസ്റ്റ് എട്ടിന് അതത് പോളിടെക്നിക്കുകളിൽ നടക്കും

നാലംഗ കുടുംബത്തെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവം മന്ത്രവാദം ആഭിചാരം എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്ന് പൊലീസ് അറിയിച്ചു കേസിൽ കസ്റ്റഡിയിലായ പ്രതികൾക്ക് കൊല്ലപ്പെട്ട കൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഇടുക്കി ജില്ലാ പൊലീസ് മേധാവി രൂറീയിച്ചു പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സ്ട്രൂപന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് അന്വേഷണം സംഘം തമിഴ്നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്